ജയരാജൻ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

നൂറുകണക്കിനാളുകൾക്ക് പരിക്ക് ശബ രി മല ദർശ ന ത്തി നെ ത്തിയ തമി ഴ് നാട് മനിതി കൂട്ടായ്മയിലെ വനിതാസംഘത്തെ ഭക്തരുടെ കനത്ത പ്രതിഷേധത്തെത്തുടർന്ന് പൊലീസ് തിരിച്ചിറക്കി

സംഘത്തെ സുരക്ഷിതമായി നില യ്ക്കലെത്തിക്കാനാണ് ശ്രമമെന്ന് റിപ്പോർട്ടുണ്ട് പുലർച്ചെ ഇരുമുടിക്കെ ട്ടുമായി പമ്പയിലെത്തിയ യുവതികളെ വഴിയിൽ ഭക്തർ തടയുകയായിരു ന്നു

സ്ഥലത്തെ സംഘർഷം കണക്കിലെടുത്താണ് യുവതികളെ പമ്പയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ശബരിമലയിൽ സമാധാനാന്തരീക്ഷം നില്നിർത്തുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഇ

ജയരാജൻ പറഞ്ഞു വിശ്വാ സികളുടെ വിശ്വാസം സംരക്ഷിക്കും ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി വൃക്തമാക്കി ശബരിമലയിൽ ബലം പ്രയോഗിച്ച് ആചാരവിരുദ്ധമായി സ്ത്രീകളെ പ്രവേശിപ്പിച്ചാൽ പിന്നീടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി മുഖ്യ മന്ത്രി പിണറായി വിജയനാണെന്ന് ശബരിമല കർമ്മസമിതി വ്യക്തമാക്കി വിഷയത്തിൽ ഗവർണർ അടിയന്തിരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു ശബരിമല ദർശനത്തിനെത്തിയ മനിതി സംഘത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതി നിരീക്ഷക സമിതി തീരുമാനമെടുക്കട്ടെയെന്ന് മന്ത്രി കട കംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു നിരീക്ഷക സമിതിയുടെ നിർദ്ദേശമനുസ രിച്ചാണ് ശബരിമലയിൽ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും നിലവിലെ സ്ഥിതിഗതികൾ അവർ വിലയിരുത്തുമെന്നും നിരീക്ഷക സമിതി എടു ക്കുന്ന തീരുമാനം ഗവൺമെന്റ് നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപു രത്ത് പറഞ്ഞു അതേസമയം ശബരിമല ദർശനത്തിനെത്തിയ മനിതി സംഘത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷക സമിതി വൃക്തമാക്കി ഇക്കാരൃത്തിൽ തീരുമാനമെടു ക്കേണ്ടത് പൊലീസും തിരുവിതാംകൂർ ദേവസ്വം ബോർഡു മാണെന്ന് നിരീക്ഷക സമിതി ദേവസ്വം ബോർഡിനെ അറിയിച്ചു

ഇവർ എരുമേലിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ദർശനത്തിന് സൌക ര്യമൊരുക്കാമെന്ന് പൊലീസ് അറിയിച്ചതായി അമ്മിണി മാധ്യമങ്ങളോട് പറഞ്ഞു പാലായിൽനിന്ന് എരുമേലിയിലേക്ക് യാത്രതിരിച്ച ആദിവാസി നേതാവിനെ പൂവരണി ഭാഗത്ത് ബിജെപി പ്രവർത്തകർ വഴി തടഞ്ഞു ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് വാഹനം കടത്തിവിട്ട ത് സമാധാനം നിലനിൽക്കുന്ന ശബരിമലയിൽ മനപ്പൂർവ്വം കുഴപ്പങ്ങളു ണ്ടാക്കാൻ ഗവൺമെന്റ് നടത്തിയ നാടകമാണ് ഇന്നുണ്ടായ സംഭവവി കാസങ്ങളെന്ന് കെ

സി പ്രസിഡന്റ് മൂല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെ ടുത്തി മനിതി സംഘത്തെ ഉപയോഗിച്ച് ശബരിമലയിൽ പ്രശ്നമുണ്ടാ ക്കാൻ ഗൂഢശ്രമമുണ്ടായെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഈ നീക്കത്തെ കെ

സി സി നിശിതമായി അപല്പിക്കുന്നുവെന്ന് മുല്ല പ്പള്ളി അറിയിച്ചു ആർ എസ് എസിനും ബിജെപിയ്ക്കും കലാപമുണ്ടാ ക്കാൻ ഗവൺമെന്റ് സഹായിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു ശബരിമലയിൽ മനിതി സംഘത്തിൽപെട്ട യുവതികളെ എത്തിച്ചതി നുപിന്നിൽ ഗവൺമെന്റിന്റെ ഗൂഢാലോചനയാണെന്ന് ബിജെപി നേതാവ് കെ

പൊലീസിന്റെയും ഗവൺമെന്റിന്റേയും ഒത്താശയോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നിലയ്ക്കലിൻനിന്ന് പമ്പ യിലേക്ക് ഭക്തജനങ്ങളുടെ വാഹനംപോലും തടയുന്ന പൊലീസ് ആചാ രലംഘകർക്ക് എല്ലാ സൌകര്യവും ചെയ്തുകൊടുക്കുകയാണെന്നും ഇത് വിശ്വാസ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും സുരേന്ദ്രൻ തിരുവ നന്തപുരത്ത് പറഞ്ഞു തമിഴ്നാട്ടിൽനിന്നെത്തിയ മനിതി സംഘത്തിലെ അംഗങ്ങൾ യഥാർത്ഥ ഭക്തരാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് പന്തളം രാജകുടുംബം

ന മണ്ഡലപൂജയ്ക്ക് അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കിയു മായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര പുറ പ്പെട്ടു

തുടർന്ന് സന്നിധാനത്ത് എത്തി ക്കുന്ന തങ്കയങ്കി അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തി സന്ധ്യാ ദീപാരാധന നടത്തും

ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രനാണ് നാല് ദിവസമായി സത്യഗ്രഹം നടത്തുന്നത്

രാജ്യം നേരിടുന്ന ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാനും രേഖ നിർദ്ദേശിക്കുന്നു യാക്കോബായ ഓർത്തഡോക്സ് സഭാതർക്കത്തിൽ സുപ്രീംകോ ടതി വിധി നടപ്പാക്കാൻ കേന്ദ്രഗവൺമെന്റിന്റെ സഹായം തേടുമെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് പൌലോസ് ദ്വിതീ യൻ കത്തോലിക്കാബാവ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് തങ്ങൾക്ക് നീതി നിഷേധിക്കുന്നുവെന്ന് കാണിച്ച് ഇന്ന് പള്ളികളിൽ വായിച്ച പ്രമേയം കേന്ദ്രത്തിനയക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പിറവം പള്ളിയുടെ കാര്യത്തിലടക്കം തങ്ങൾക്ക് അനുകൂലമായ സുപ്രീംകോടതി വിധി ഗവൺമെന്റ് നടപ്പാക്കണമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം

നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റു നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്

ഒട്ടേറെ പേർക്ക് ഇതിനിടയിലാണ് പരിക്കേറ്റത് കാർഷിക പ്രശ്നങ്ങൾക്ക് സമൂഹവും മാധൃമങ്ങളും അർഹമായ പ്രാധാന്യം നൽകുന്നില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു കർഷക മരണങ്ങൾക്കുപോലും പരിഗണന ലഭിക്കുന്നില്ല ആഗോള കുത്ത കകൾ ക്ഷീരമേഖലയിലേക്കുകൂടി കടന്നുവരുന്നതോടെ രാജ്യത്തെ ആഭ്യ ന്തര പാലുൽപാദനവും തകരുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു കാവേരി വിധിയോടെ ബാണാസുരസാഗർവഴി പെരുവണ്ണാമൂഴി ഡാമി ലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവു കുറഞ്ഞതായി മന്ത്രി പറഞ്ഞു ഇതെങ്ങനെ പരിഹരിക്കണമെന്ന കാര്യം ഗവആലോചിച്ചുവരികയാ ണെന്നും മന്ത്രി പ്രസ്ക്ലബ്ബ് സംഘടിപ്പിച്ച സംവാദത്തിൽ അറിയിച്ചു റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ കൃത്യത നില നിർത്താൻ ഇ പോസ് മെഷിനുകൾ ഇലക്ടോണിക് ത്രാസുമായി ബന്ധി പ്പിക്കുന്നതിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് മന്തി പി തിലോത്തമൻ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു വെള്ളരിക്കുണ്ട് ലീഗൽ മെട്രോളജി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വെള്ള രിക്കുണ്ട് താലൂക്ക് ഓഫീസിനോട്ടനുബന്ധിച്ച് ഇനിയും ഓഫീസുകൾ നിർമ്മിക്കാനുണ്ടെന്നും അവയെല്ലാം ഉടൻ പ്രവർത്തനം തുടങ്ങാൻ നട പടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അട്ടപ്പാടി ആദിവാസി മേഖലയിൽ നവജാത ശിശുക്കൾ തുടരെ മരി ക്കുന്ന സാഹചര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു മേഖലയിൽ ഗർഭിണികളു ടെയും നവജാതശിശുക്കളുടേയും ക്ഷേമത്തിനായി നടത്തിയ പ്രവർത്ത നങ്ങളെക്കുറിച്ച് മൂന്നഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ജില്ലാ കലക്ടറടക്കം അധികൃതരോടാവശ്യപ്പെട്ടു കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനൽ ജീവന ക്കാർ നടത്തുന്ന ലോംഗ്മാർച്ച് നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാ പിക്കും

കഴിഞ്ഞ ചൊവ്വാഴ് ച ആലപ്പു ഴ യിൽനിന്നാണ് മാർച്ച് ആരംഭിച്ചത് തപാൽ മേഖലയിൽ ഗ്രാമീണ ഡാക് സേവക് ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ആറാം ദിവസത്തിൽ സമരം തപാൽമേഖല യുടെ പ്രവർത്തനത്തെ കാരൃമായി ബാധിച്ചിട്ടുണ്ട് ട ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യമത്സര ത്തിൽ നെരോക മിനർവ പഞ്ചാബിനെയും മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഷില്ലോങ്ങ് ലജോങ്ങിനെയും നേരിടും കോഴിക്കോട് കുന്നമംഗലത്ത് സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാവിഭാഗത്തിൽ കോഴിക്കോട് ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് ഇടുക്കിയെ തോൽപ്പിച്ചു പുരുഷ വിഭാഗത്തിൽ തിരുവനന്തപുരം രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് മലപ്പുറത്തെ പരാ ജയപ്പെടുത്തി തിരൂർ തുഞ്ചൻപറമ്പിലെ അന്തർദേശീയ മഹാഭാരത സെമിനാർ ഇന്ന് സമാപിക്കും മഹാഭാരതത്തിന്റെ പുനർവായനയും വിവർത്തനവും കേന്ദ്രീകരിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് സമാപനയോഗത്തിൽ പ്രഭാവർമ്മ മുഖ്യപ്രഭാഷണം നടത്തും ബന്ധുനിയമന വിവാദത്തിൽ ആരോപണ വിധേയനായ മന്ത്രി കെ